രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഇരു സഭകളെയും അഭിസംബോധന ചെയ്യും

നേരിട്ടെന്ന് പ്രധാനമന്ത്രി നദ്ദേന്ദ്രമോദി

പ്രശംസിച്ച് ഐക്യരാഷ്ട്ര സംഘടന

സാമ്പത്തിക സർവ്വേ ് റിപ്പോർട്ട് ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും

മന്ത്രിമാർ ഇരുസഭകളിലെയും നേതാക്കൾ മുൻ പ്രധാനമന്ത്രിമാർ ബി ജെ

മറ്റ് അംഗങ്ങൾ ലോക്സഭ രാജ്യസഭ ചേസ്തുകളിൽ കോവിഡ് മാനദണ്ഡം പാലിച്ച് ഇരിക്കും പാർലമെന്റിന്റെ സ്സ്ഗമമായ നടത്തിപ്പിനായി നാളെ സർക്കാർ സർവ കക്ഷിയോഗം വിളീച്ചു ഞായറാഴ്ച് രാജ്യസഭാ അധ്യക്ഷൻ എം

ബജറ്റ് രേഖകൾ പാർലമെന്റംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിനായി യൂണിയൻ ബജറ്റ് മൊബൈൽ ആപ്പ് എന്ന പ്രത്യേക മൊബൈൽ ആപ്തിക്കേഷൻ പുറത്തിറക്കി ധനമന്ത്രി നിർമല സീതാരാമന്റെ ബജറ്റ് പ്രസംഗം പൂർത്തിയായ ശേഷം അനുബന്ധ രേഖകൾ ആപ്പിലൂടെ ലഭ്യമാകും

ലോക സാമ്പത്തിക ഫോറത്തിന്റെ ദാവോസ് സംവാദത്തെ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകത്തെ ഏറ്റവും വലിയ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് പരിപാടിയാണ് രാജ്യത്ത് നടപ്പാക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

എന്നാൽ പൊതുജന പങ്കാളിത്തത്തിലൂടെയും ആരോഗൃമേഖലയിലെ സൌകര്യങ്ങളുടെ വികാസത്തിലൂടെയും രാജ്യത്തിന് ക്ടോവിഡിനെ റെക്കോർഡ് സമയത്തിനുള്ളിൽ നേരിടാൻ കഴിഞ്ഞ്ത്രായി ശ്രീ

മേഖലയിലെ കൊറോണ പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിച്ച ഇരുവരും ഇന്ത്യ യു എ

കോവിഡാനന്തര കാലത്തും ഇന്ത്യ യു എ

ഇ യിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ കാര്യങ്ങൾ യു എ

ഇപ്പോൾ ഒന്നേമുക്കാൽ ലക്ഷത്തോളം പേർ മാത്രമാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്

നിലവിൽ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധ രേഖപ്പെടുത്തുന്ന സംസ്ഥാനം കേരളം ആണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കോവിഡ് വ്യാപനം തടയുന്നതിനുവേണ്ടിയുള്ള ശക്തമായ നടപടികൾ തുടരും ആൾക്കൂട്ടം ഒഴിവാക്കണമെന്നും വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ പങ്കാളിത്തം പരിമിതപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു

ഡൽഹിയിലെ സുശ്രുത ട്രോമാകെയറിലും തീരാഥ് റാം ആശുപത്രിയിലുമാണ് അമിത്ഷാ സന്ദർശനം നടത്തിയത് പരിക്കേറ്റ പോലീസുകാർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്ന് ശ്രീ

ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പരീക്ഷാ തീയതി അടുത്തമാസം രണ്ടിന് പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേഷ് പൊക്രിയാൽ നിഷാങ്ക് പറഞ്ഞു

ബി എസ് ഇ സഹോദയ സ്കൂളുകളിലെ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരുമായി വീഡിയോ കോൺഫറൻസിലൂടെ ആശയ വിനിമയം നടത്തുകയായിരുരന്നു അദ്ദേഹം

ലോകത്ത് ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കിടയിലാണ് ഇത്തരം രോഗങ്ങൾ കൂടുതലും പടരുന്നത്

ഇന്ത്യയുടെ വാക്സിൻ ഉൽപാദന ശേഷി ലോകത്തെ ഏറ്റവും മികച്ച മുതൽകൂട്ടാണെന്നും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറെസ് മാധ്യമങ്ങളോട് പറഞ്ഞു ആഗോള തലത്തിൽ പ്രതിരോധ കുത്തിവയ്പ് സാധ്യമാണെന്ന് ഉറപ്പുവരുത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഇന്ത്യയിൽ ഉണ്ടെന്നും യു

അതേസമയം പസഫിക് ദ്വീപ സമൂഹങ്ങളിലേയ്ക്കും പ്രതിരോധ കുത്തിവയ്പിനുള്ള ഡോസുകൾ നൽകാൻ ഇന്ത്യ പദ്ധതിയിടുന്നതായി വിദേശകാരൃ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു

യുദ്ധ മേഖലയിൽ നിന്ന് രാത്രി സമയത്ത് സേനാംഗങ്ങൾ പിൻവാങ്ങുന്നതാണ് ബീറ്റിങ്ങ് റിട്രീറ്റ്

കടലാമ സംരക്ഷണത്തിനായി അന്തർ മേഖലാ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മാർഗരേഖ വ്യക്തമാക്കുന്നു

ഒരു റിപ്പോർട്ട്

എൻ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ടി

ലിബിയയിൽ സൈനിക നടപടികൊണ്ട് പ്രപശ്നം പരിഹരിക്കാൻ കഴിയില്ല

സമാധാനശ്രമങ്ങൾ പൂർണമായ്യുടെ ലിബിയൻ നേതൃത്വത്തിൽ തന്നെയാകണമെന്നും ശ്രീ

വെടിനിർത്തൽ ഉൾപ്പെടെ എല്ലാ ശ്രമങ്ങളെയും ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിൽ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

വാൾ സ്ട്രീറ്റ് ജേർണലിന്റെ പത്രപ്രവർത്തകനായ പേളിനെ തട്ടിക്കൊണ്ടുപോയി കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതിയെ വെറുതെവിട്ട മൂന്നംഗ ജഡ്ജിമാരുടെ പാനലിന്റെ നടപടി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനമേകുന്നതാണെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ജെൻ സാക്കി പ്രതികരിച്ചു

ഈ സാഹചരൃത്തിൽ സൈനിക വിന്യാസം കുറയ്ക്കാൻ കഴിയാതെ വന്നെന്നും അദ്ദേഹം പറഞ്ഞു

ജയശങ്കർ

അമേരിക്കൻ വിദേശനയത്തിൽ ഏഷ്യയ്ക്ക്ക് നിർണായക സ്ഥാനമാണുള്ളതെന്നും ഏഷ്യാ അമേരിക്കൻ ബ്ന്ധം മുമ്പത്തെപ്പോലെ വളരെ സൌഹാർദ്ദത്തോടെ തുട്രു്മെന്നും അമി ബെറ പറഞ്ഞു

ഇന്നലെ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടിയാണ് സമനിലയിൽ പിരിഞ്ഞത്

ഒരു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് അദ്ദേഹത്തിന് ആഞ്ചിയോപ്ലാസ്റ്റി നടത്തുന്നത്